ഫോനി ചുഴലിക്കാറ്റ് അതി തീവ്രതയാർജിക്കുന്നതായി റിപ്പോർട്ട് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്ര പ്രദേശ് തീരങ്ങളിൽ സുരക്ഷ മുന്നറിയിപ്പ്

സംസ്ഥാനത്ത് ഭൂമിയുടെ നൃായ്ക്ഷില്ല വർധന നാളെ നിലവിൽ വരും പത്ത് ശതമാനമാണ് വർധന

ഐ

എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും

ഫോനിയുടെ അതിതീവ്രത കണ ക്കിലെടുത്ത് ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങ ളിലും ആന്ധ്രയിലെ ശ്രീകാകുളം വിജയനഗരം വിശാഖ പട്ടണം എന്നീ ജില്ലകളിലും യെല്ലോ ൽലേർട്ട് പ്രഖ്യാപിച്ചിരി ക്കുകയാണ് ഫോനിയുടെ പ്രഭാവത്തിൽ ക്കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രത നിർദ്ദേശമുണ്ട്

മത്സൃതൊഴിലാളികൾ ഈ സമയങ്ങളിൽ കടലിൽ പോകരുതെന്നും ഇപ്പോൾ കടലിലുള്ളവർ എത്രയും വേഗം മടങ്ങിവരണമെന്നും മുന്നറിയിപ്പുണ്ട്

ഭൂമിയുടെ വിപണി വിലയും ഗവൺമെന്റ് നിശ്ചയിച്ച നൃായവിലയും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് നൃായവില വർധന ധനവകുപ്പ് കഴിഞ്ഞ ബജറ്റിൽ നിർദ്ദേശിച്ച വിലവർധനയാണിത് മേയ് ദിനം ഇൻട്രോ അധ്വാനത്തിന്റെ മഹത്വത്തെയും തൊഴിലാളികളുടെ അവകാ ശങ്ങളെയും ഓർമിപ്പിച്ചുകൊണ്ട് ഇന്ന് സാർവ്വദേശീയ തൊഴിലാളിദിനം ലോകമെമ്പാടുമുള്ള സാമൂഹ്ച്ച് സാമ്പത്തിക നേട്ടങ്ങളെ സ്മരിക്കുന്ന ദിനം കൂടിയാണിത് രാജ്യാതിർത്തികൾകൊണ്ട് വിഭജിക്കാനാകാത്ത പ്രർഗ്ഗ് ബോധത്തിന്റെ പ്രതിഫലനം കൂടിയായ മേയ് ദിന്ത്തെക്കുറിച്ച് സംസ്ഥാന തൊഴിൽ മന്ത്രി ടി

രാമകൃഷ്ണൻ ആകാശ വാണിയോട്

തങ്ങളുടെ ജീവനോപാധി സംരക്ഷിക്കാനും നവ ലിബറൽ നയങ്ങളുടെ ആക്രമണങ്ങളെ ചെറുക്കാനും തൊഴിലാളി കളും കർഷകരും നടത്തുന്ന പോരാട്ടത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി സന്ദേശ ത്തിൽ അറിയിച്ചു

ഒഡീഷ എക്സൈസ് ഫോറൻസിക് വകുപ്പുകൾ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു

പ്രതിരോധം വേനൽമഴയിലും കാലവർഷത്തിലും പകർച്ച വ്യാധികൾ തട യാൻ കോട്ടയം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മഴക്കാലപൂർവ്വ തയ്യാക്കൊട്ടു്പ്പുകൾ ചർച്ച ചെയ്യു ന്നതിന് ജില്ലാ കളക്ടർ പി ക്ടിക്ട് ്സുധീർ ബാബുവിന്റെ അധ്യക്ഷതയിൽ കളക്ടറ്റേറ്റിൽ ചേർന്ന യോഗം ഇതുവരെ യുള്ള പ്രവർത്തനങ്ങൾ വിലിയിരുത്തി മഴക്കാല രോഗ പ്രതി രോധ നടപടികൾക്ക് ജില്ലയിൽ ആരോഗ്യ വകുപ്പ് തുടക്കം കുറിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസിർ ഡോ ജേക്കബ് വർഗ്ഗീസ് അറിയിച്ചു വേനൽമഴ ആലപ്പുഴയിൽ കനത്ത വേനൽമഴ തുടരുന്നു ഇന്നലെ രാത്രിയാണ് മഴ തുടങ്ങിയത്

കൊച്ചി നഗരത്തിലും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ തുടരുന്നു അന്നപൂർണ്ണം പദ്ധതി വിശന്നു വലയുന്നവർ ഇല്ലാത്ത ഇടുക്കി എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യ ഘട്ടമായി അന്നപൂർണ്ണം തൊടുപുഴ പദ്ധതിക്ക് നാളെ തുടക്കമാകും

പ്രാധാനൃത്തെക്കുറിച്ച് സംസ്ഥാന ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വി

എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും ്ക് ഇരു ടീമുകളും പ്ലേ ഓഫ് ഉറപ്പിച്ചു

നിലവിൽ പോയിന്റ് പട്ടികയിൽ മുംഖ്ബ് മൂന്നാമതും ഹൈദരാബാദ് നാലാമതുമാണ് മുംഐബ്ക്ക് പ്പേഓഫ് ഉറപ്പാക്കാൻ ഇനി ഒരു ജയം മതിയാകും മെയ്ദിന സ്പോട്സ് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റേയും തൊഴിൽ വകുപ്പിന്റേയും സംയുക്താഭിമുഖ്യത്തിൽ മെയ്ദിന സ്പോർട്സ് മലബാർ ക്രിസ്തൃൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്നു ഇതോടനുബന്ധിച്ച് അത്ലറ്റിക്സ് വടംവലി മത്സരങ്ങളാണ് നടന്നത് മത്സരങ്ങൾ കേരള സ് പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഒ

സമാപന ചടങ്ങിൽ വിജയികൾക്ക് ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഡോ റോയ് വി ജോൺ ക്യാഷ് അവാർഡും മൊമന്റോയും സമ്മാനിച്ചു

പിയുടെ കോർകമ്മിറ്റി യോഗവും സംസ്ഥാന ഭാര വാഹി യോഗവും കൊച്ചിയിൽ നടക്കുന്നു

ജെ

പ്രിലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ അജണ്ട

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തെ ബി

പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കണമെന്ന ബി

ജെപി ദേശീയ നേതാക്കളുടെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് ആവേശത്തെ കെടുത്തിയതായും

ജെ

മന്ത്രി ഇ ചന്ദ്ര്ശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കും ശ്രീ ചുനക്കര രാമൻകുട്ടി റേ അനുസ്മരണം നടത്തും തുടർന്ന് ചാരുലത നാടക അവതരണത്തിന്റെ ഉദ്ഘാടനം ചച്ചിത്രനടൻ മധു നിർവഹിക്കും

രോഗം ബാധി ച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരികരിക്കാൻ ഇവരെ ത്വക്ക് രോഗ വിദഗ്ദ്ധർ പരിശോധിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ആഫീസർ അിറയിച്ചു

നാളെ ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷകളും വെള്ളിയാഴ്ച കണക്ക് പരീക്ഷയും നടക്കും